പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

എഫ് മുന്നേറ്റം

ഡി

ഡി

പാലക്കാട് പന്തളം മുനിസിപ്പാലിറ്റികളിൽ എൻ ഡി എക്ക് ലീഡ് തിരുവനന്തപുരം കോർപറേഷനിൽ സഖ്യം രണ്ടാം സ്ഥാനത്ത്

ജീവത്യാഗം ചെയ്ത സൈനികർക്ക് പ്രധാനമന്ത്രിയും രാജ്യരക്ഷാമന്ത്രിയും ആദരാഞ്ജലി അർപ്പിച്ചു

ഗുജറാത്തിലെ കച്ചിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക മേഖലയിലെ പരിഷ്ക്കരണം കർഷകരുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

എന്നാൽ തങ്ങളുടെ ഭരണകാലത്ത് കാർഷിക പരിഷ്ക്കരണങ്ങൾ നടപ്പാക്കാൻ അവർ താല്പര്യം കാണിച്ചില്ല

ഡി

ഡി

എഫും മുന്നിലാണ്

ഡി

ഡി

ഡി

ഡി

ഡി

ഡി

എഫിന് മുന്നേറ്റം

ഡി

ഡി

പഞ്ചായത്തുകളിലാണ് യു ഡി

ഡി

ഡി

ഡി എഫ് മുന്നിൽ

ഡി

ഡി

എഫ് മുന്നിലാണ്

ഡി

കോർപ്പറേഷനിലെ യുഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥിയെ ഒരു വോട്ടിന് പരാജയപ്പെടുത്തി എൻഡിഎ സ്ഥാനാർത്ഥി വിജയിച്ചു

കോർപറേഷനിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കുമെന്ന് അവകാശപ്പെട്ട ബി

പിയുടെ നില എന്താണ് എത്ര വാർഡുകളിലാണ് എൻ ഡി

ഡി

ഡി

ഡി എഷ്ട് മുന്നേറ്റം

ഡി എഫ് ലീഡ് ചെയ്യുമ്പോൾ്

ഡി

ജെ

എട്ട് പഞ്ചായത്തുകളിലാണ് എൽ

ജില്ലാപഞ്ചായത്തിൽ എൽഡിഎഫും യുഡിഎഫും ഒപ്പത്തിനൊപ്പമാണ്

ഡി

ജെ

ഡി എഫ് മുന്നേറ്റമാണ്

പെരിയ ഇരട്ടക്കൊലപാതകം നടന്ന കല്യോട്ട് വാർഡ് യു ഡി

ഡി എഫ് സ്ഥാനാർത്ഥി സി

ഡി എ ലീഡ് ചെയ്യുകയാണ് ജില്ലാപഞ്ചായത്തിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുന്നു

വിജയസൂചകമായി തയാറാക്കിയ സ്വർണിം വിജയ് വർഷ് എന്ന ലോഗോ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനാച്ഛാദനം ചെയ്തു ഇന്ത്യൻ സൈനികർ പ്ലൂർത്യുടെ പുതിയ അധ്യായം കുറിച്ച യുദ്ധമായിരുന്നു ഇതെന്ന്് രാജ്യരക്ഷാമന്ത്രി ട്വീറ്റിൽ പറഞ്ഞു